കുറച്ചു

ഗുജറാത്തിൽ ജസ്ദാൻ നിയമസഭാ സീറ്റിലേക്ക് ന് നടന്ന ഉപതെരെഞ്ഞെടുപ്പിൽ ബി ജെ

പ്രിമിയർ ബാഡ്മിൻൺ ലീഗിൽ ്യൂ ഇന്ന് മുംബൈ ഡെൽഹിയേയും അഹമ്മദാബ്ദാദ് നോർത്ത് ഈസ്റ്റേൺ വാരിയേഴ്സിന്റേയ്ും നേരിടും

ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ജി

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ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

ന്യൂസ് ഡസ്ക് ആകാശവാണി

സ്വാതന്ത്ര്യാനന്തരം ഇത് ആദ്യമായി പല പദ്ധതികളുടെയും മുഖ്യ ഉപഭോക്താക്കൾ സ്ത്രീകളായി മാറിയത് എൻ

എ ഗവൺമെന്റ് നടപ്പാക്കിയ ഫ്ളാഗ് ഷിപ്പ് പദ്ധതികളിലൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിനഗറിന് സമീപം ത്രിമന്ദിർ ക്ഷേത്ര സമുച്ചയത്തിൽ ഇന്നലെ ബി ജെ

മഹിളാ മോർച്ചയുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ

ജെ

ഇതോടെ ഗുജറാത്തിൽ ഭരണകക്ഷിയായ ബി ജെ

നേരത്തെ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം

എ ആയിരുന്ന കൻവാർജി ഭാവാലിയ കോൺഗ്രസിൽ നിന്ന് രാജിവച്ച് ബി ജെ

ഇതേ തുടർന്നാണ് ജസ്ദാനിൽ ഉപതെരെഞ്ഞെടുപ്പ് വേണ്ടിവന്നത്

മാവോവാദി സാന്നിദ്ധ്യമുള്ള ഇടങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കും ഇടതു തീവ്രവാദത്തിന് പരിഹാരം കാണാനായി പ്രശ്നബാധിതരെയും ഇതുമായി ബന്ധമുള്ളവരെയും ഉൾക്പ്പടുത്തി ഗവൺമെന്റ് ചർച്ചകൾ നടത്തുമെന്നും ഛ്ഞ്ചീസ്ഗഡ് മുഖ്യമന്ത്രി ആകാശവാണിയോട് പറഞ്ഞു

പമ്പയിൽ ഇവരെ തടഞ്ഞുവച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

ഇവർക്കെതിരെ പ്രതിഷേധവുമായി നൂറുകണക്കിനാളുകൾ പമ്പയിലണിനിരന്നു സന്നിധാനത്തേക്ക് പോകാൻ പ്രത്യേക സുരക്ഷ ഒരുക്കാൻ യുവതികൾ പോലീസിനോട് ആവശ്യപ്പെട്ടു അതേസമയം യുവതികളെ തടഞ്ഞ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോകണമെന്ന് പോലീസ് മെഗാഫോണിലൂടെ നിരവധി തവണ മുന്നറിയിപ്പ് നൽകി നിർദ്ദേശം പ്രതിഷേധക്കാർ അവഗണിച്ചതോടെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങി തുടർന്ന് യുവതികളുമായി കാനനപാതയിലൂടെ പോലീസ് മുന്നോട്ടു നീങ്ങിയെങ്കിലും പ്രതിഷേധം ശക്തമായി സംഘർഷത്തിൽ നിന്നും യുവതികളെ രക്ഷിക്കാൻ പോലീസ് ഇവരെ ഗാർഡ് റൂമിലേക്കും അവിടെനിന്നും പമ്പയിലെ പോലീസ് കൺട്രോൾ റൂമിലേക്കും മാറ്റി

മുംബൈയിൽ ഇന്നലെ വൈകിട്ട് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഹൈദരാബാദ് പൂനെ ടീമിനെ പരാജയപ്പെടുത്തി ഒളിമ്പിക് മെഡൽ ജേതാവ് പി

കർഷകർക്കുള്ള വേതനം സമയബന്ധിതമായി നൽകാൻ നേരത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മില്ലുടകളോട് ആവശ്യപ്പെട്ടിരുന്നു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

തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഏജൻസി ആവശ്യപ്പെട്ടത് അതിനു ശേഷം മിഷേലിനെ എൻഫോഴ്സ്മെന്റ് വിഭാഗം അറസ്റ് ചെയ്തു അന്വേഷണം നിർണായകമായ ഘട്ടത്തിലായതിനാൽ ജാമൃത്തിനുള്ള മിഷേലിന്റെ ഹർജി കോടതി തള്ളിക്കളഞ്ഞു

ഡൽഹിയിൽ ഇന്ന് രാവിലെ കനത്ത മഞ്ഞ് കാരണം ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു

പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും അതിശൈത്യം അനുഭവപ്പെടുന്നു

വർഷാന്ത്യ പ്രക്ഷേപണ പരമ്പരയിൽ കേന്ദ്രഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സാമൂഹ്യസുരക്ഷാ പദ്ധതികളെയും മറ്റ് ഫ്ളാഗ്ഷിപ്പ് പരിപാടികളെയും കുറിച്ചുള്ള ചർച്ചകൾ ആണ് പ്രക്ഷേപണം ചെയ്യുക പരിപാടിയിൽ ഇന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഡോ

ഭീകരവിരുദ്ധ സൈനിക നീക്കങ്ങൾ ശ്രീക്ത്മാക്കാനാണ് സംയുക്ത സൈനിക അഭ്യാസം നടത്തിയ്ക്ക് ഇർതരാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം മെച്ചപ്പെടുത്താൻ പരിപാടി സഹായിച്ചതായി ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ കൂറിച്ചു

ചന്ദ്രശേഖരറാവു സഹായം ആവശ്യപ്പെട്ടത്

ദേശീയപാതയുടെ നിർമ്മാണം നിർദ്ദിഷ്ട സമയപ്പിരിധിയായ എട്ടുവർഷം തികയുന്നതിനു മുമ്പ് പൂർത്തീകരിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മിന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു

മീ

ഗോവയിൽ ഇന്നലെ വൈകിട്ട് ഖണ്ഡേപാർ പാലം ഉത്ഘാടനം ചെയ്യവെ അദ്ദേഹം അറിയിച്ചതാണ് ഇക്കാര്യം

ഡൽഹി ഹൈക്കോടതിയുടെ വിധി പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിച്ചത്